സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതിയും ക്ഷേമപദ്ധതികളുടെ ഗുണഫലവും എത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ മുൻഗണനയെന്ന് പ്രധാനമന്ത്രി

രാജ്യത്തുടനീളം ആരംഭിക്കുന്ന പ്രതിനായിരം കാർഷികോത്പാദന സംഘടനകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദ്ദേശീല്ല ചിത്രകൂടിൽ തുടക്കമിട്ടു ബുന്ധേൽഖണ്ഡ് അതിവേഗ് പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം

സാഹോദരൃത്തിന്റെ സന്ദേശം ഉയർത്തി സമൂഹത്തിൽ സമാധാനവും സഹിഷ്ണുതയും നിലനിർത്താൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആഹ്വാനം

ഉത്തർപ്രദേശിൽ വിപിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി

വോയിസ് എല്ലാവരോടൊപ്പവും എല്ലാവരുടേയും വികസനം എന്നതാണ് ഗവൺമെന്റിന്റെ അടിസ്ഥാന ത്വമെന്ന് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി ആവർത്തിച്ചു വ്യക്തമാക്കി ജനങ്ങളുടെ ജീവിതം അനായാസവും സുഖകരവുമാക്കാൻ ഗ്ര്പ്പൺമെന്റ് വിവിധ പദ്ധതികൾ ആവിഷ്ക്കരിച്ച് നടപ്പിലാക്കി പ്രിക്യാണ്

മുതിർന്ന പൌരന്മാർക്കും ഗവണമെന്റ് വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുകയും സ്വകാര്യ ടി വി ചാനലുക്ൾ ദിവ്യാംഗർക്കായി പ്രത്യേക പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് ദിവ്യാംഗർക്കുളള ഗവൺമെന്റ് ജോലിയിലെ സംവരണം മൂന്നിൽ നിന്ന് നാല് ശതമാനമായി വർദ്ധിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം അഞ്ച് ശതമാനമായി രണ്ട് ലക്ഷം ദിവ്യാംഗർക്ക് വൈദഗ്ധ്യ പരിശീലനം നൽകിയതായും അഞ്ച് ലക്ഷം പേരെ തുടർന്ന് പരിശീലനം നൽകാൻ ലക്ഷ്യമിടുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഉത്തർ പ്രദേശിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കു പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു ചിത്രകൂടിൽ ബുന്ധേൽഖണ്ഡ് അതിവേഗ പാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ശ്രീ നരേന്ദ്രമോദി നിർവ്വഹിച്ചു ബുന്ധേൽ ഖണ്ഡ് മേഖലയിലെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുളള പദ്ധതിയ്ക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ തുടക്കമായി

എം കിസാൻ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് കിസാൻ ക്രഡിറ്റ് കാർഡും പ്രധാനമന്ത്രി വിതരണം ചെയ്തു ന്യൂസ്ഡെസ്ക് ആകാശവാണി

ദ്വിദിന സന്ദർശനത്തിനായി ഝാർഖണ്ഡിൽ എത്തിയതായിരുന്നു അദ്ദേഹം സന്ദർശനത്തിന്റെ ഭാഗമായി ഗുംല ജില്ലയിലെ ബിഷ്ണുപൂർ വികാസ് ഭാരതി കേന്ദ്രം സന്ദർശിച്ച രാഷ്ട്രപതി വിവിധ ഗോത്രവർഗു വിഭാഗങ്ങളുമായി ആശയവിനിമയം നടത്തി ബിഷ്ണുപൂരിൽ കൃഷി ജലസംരക്ഷണം ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ സുസ്ഥിര വികസനം സാധ്യമാകുന്നതിന് പരിശ്രമിച്ചുവരുന്ന വികാസ് ഭാരതി സന്ദർശിക്കണമെന്ന് രാഷ്ട്രപതി നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു

രാജസ്ഥാനിലെ സ്വന്തം മണ്ഡലമായ കോട്ടയിൽ സുപോഷിത് മാ അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പോഷക കുറവിൽ നിന്ന് രാജ്യത്തെ സ്വതന്ത്രമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അണിചേരണമെന്ന് ലോക്സഭാ സ്പീക്കർ ആവശ്യപ്പെട്ടു

ഒഡിഷ സന്ദർശനത്തിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ദർശനം ക്ര്ഷേത്രവും പരിസരവും ചുറ്റിക്കണ്ട് ആഭ്യന്തര മന്ത്രി വിമ്ല മഹാലക്ഷ്മി ദേവീക്ഷേത്രങ്ങളിലും ദർശനം നടത്തി കേന്ദ്രമന്ത്രിമാരായ ധർമേന്ദ്ര പ്രധാൻ പ്രതാപ് സാരംഗി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ബി ജെ പി ദേശീയ ഉപാദ്ധ്യക്ഷൻ ബൈജയന്ദ് പാണ്ഡെ എന്നിവരും ആഭ്യന്തര മന്ത്രിയെ അനുഗമിച്ചു

വാർഷിക പരീക്ഷകൾ മാർച്ച് ഏഴ് വരെ മാറ്റിവച്ചതായി ഡൽഹി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അറിയിച്ചു

ഡൽഹിയിലെ മറ്റു ജില്ലകളിലെ സ്കൂൾ വാർഷിക പരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടിന്നുവരുന്നു

രണ്ടാഴ്ചയായി മലേഷ്യയിൽ രാഷ്ട്രീയ പ്രതിസന്ധി നിലനിന്നതിനിടെയാണ് പുതിയ പ്രധാനമന്ത്രിയുടെ നിയമനം മുൻമന്ത്രിയും ബർസാതു പാർട്ടി അധ്യക്ഷനുമായ മുഹ്യിദ്ദിൻ നാളെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് കൊട്ടാരം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു പ്രധാനമന്ത്രിയായിരുന്ന മഹാതിർ മുഹമ്മദ് രാജിവച്ചതിനെ തുടർന്നാണ് മലേഷ്യയിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത്

ഖത്തറിലെ ഇന്ത്യൻ പ്രതിനിധി പി

ചരിത്രപരമായ ഈ സമാധാന ഉടമ്പടി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആയിരക്കണക്കിന് യു

അഫ്ഗാനിസ്ഥാനിൽ ശാശ്വത സമാധാനവും രാജ്യത്തിന്റെ സ്ഥിരതയും ലക്ഷ്യം വയ്ക്കുന്ന കരാറിനുളള ഇന്ത്യയുടെ പിന്തുണ അദ്ദേഹം അഫ്ഗാൻ ഉന്നത നേതാക്കളെ അറിയിച്ചു പ്രസിഡന്റ് അഷ്റഫ് ഖാനിയെ സന്ദർശിച്ച വിദേശകാരൃ സെക്രട്ടറി കരാറിന്റ് പിന്തുണ അറിയിച്ചു കൊണ്ടുളള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ത്ത് കൈമാറി

സംഘടനയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുളള മുന്നറിയിപ്പാണിത്

കൊറോണ വൈറസിനെ നിയന്ത്രിച്ച് നിർത്താനുളള സാഹചര്യങ്ങൾ മുന്നിലുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന മേധാവി ടെഡ്രോസ് അദാനം പറഞ്ഞു വൈറസിനെ നിയന്ത്രിക്കാനുളള ഫലപ്രദമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും വിഷയത്തെ ലഘുവായി കാണരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ആഫ്രിക്കയുടെ സബ് സഹറാൻ മേഖലയിൽ കൂടി കൊറോണ എത്തിയതോടെ ആഗോള സാമ്പത്തിക മേഖലയിലും മാന്ദ്യം ദൃശ്യമായി

കൊറോണ പൊട്ടിപ്പുറപ്പെട്ട ശേഷം ചൈനയിൽ ഓഹരി വിപണിയിൽ കഴിഞ്ഞ വർഷം മെയ്യ്ക്ക് ശേഷമുണ്ടായ ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്

ബി

ഇവരുടെ ആദ്യ രക്ത സാമ്പിളികളുടെ ഫലം ഇന്നലെ എയിംസിൽ നിന്ന് ലഭിച്ചു

രോഗബാധയില്ലെന്ന് സ്ഥിരീകരിച്ചാൽ ഇവരെ നിരീക്ഷണകേന്ദ്രത്തിൽ നിന്ന് പുറത്ത് വിടും ന്യൂസ് ഡെസ്ക് ആകാശവാണി

സി

ഉടമ്പടി രാജ്യ സുരക്ഷയെയും പരമാധികാരത്തേയും ബാധിക്കുന്ന വിഷയമായതിനാലാണ് പ്രസിഡന്റ് ഗോതബയ രജപക്സെ നിയമിച്ച പ്രത്യേക സമിതി ഉടമ്പടിയുടെ കാര്യത്തിൽ പാർലമെന്റ് തീരുമാനം വേണമെന്ന നിലപാടെടുത്തത്

സി

ഗ്രൂപ്പിലെ നാല് മത്സരവും ജയിച്ച ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു

എന്നാൽ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഈ വേദി ബിഷ്കേക്കിലേയ്ക്ക് മാറ്റുകയായിരുന്നു

കേരള ധനകാര്യ ബില്ലും സഭ പരിഗണിക്കും